ചികിത്സയിലുള്ളവരെക്കാൾ മൂന്ന് മടങ്ങാണ് രോഗമുക്തരായവരുടെ എണ്ണം

കേരളം അസം ബീഹാർ ഒഡീഷ തെല്ലിങ്കാന് ത്രിപുര ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിട്ടങ്ങളിൽ മരണനിരക്ക് ഒരു ശതമാനത്തിൽ കുറവാണ്

കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഇത്

ആലുവ തൈക്കൂടം സ്റ്റേഷനുകളിൽ നിന്ന് രാത്രി എട്ടിന് അവസാന സർവ്വീസ് പുറപ്പെടുന്ന രീതിയിലാണ് സർവ്വീസുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അറിയിച്ചു